സി ഇന്ന് മിനർവ പഞ്ചാ ബിനെ നേരിടും രരാട്ട്ടങ ശബരിമലയിൽ വീണ്ടും ദർശനത്തിനെത്തിയ രണ്ട് യുവതികളെ പുലർച്ചെ പൊലീസ് നിലയ്ക്കലിൽ തടഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച ദർശന ത്തിന് എത്തി മടങ്ങിയ കണ്ണൂർ സ്വദേശികളായ രേഷ്മ നിഷാന്തും ഷാനില യുമാണ് ഇന്ന് വീണ്ടും നിലയ്ക്കലിലെത്തിയത്

ദർശനം നടത്തിയശേഷമേ മടങ്ങൂവെന്ന് യുവതികൾ പൊലീ സിനെ അറിയിച്ചു

ഇന്ന് രാത്രികൂടി മാത്രമേ ഭക്തർക്ക് ദർശനം അനുവ ദിക്കൂ പന്തളം രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷമായിരിക്കും നാളെ രാവിലെ നട അടയക്കുന്നത്

ജെ

ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസാണ് ഇന്നലെ മുതൽ നിരാഹാരമനുഷ്ഠിക്കുന്നത് പതിനൊന്ന് ദിവസം നിരാഹാര സമരം ചെയ്ത മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ പ്രൊഫസർ വി ടി രമയെ ഇന്നലെ ആശു പത്രിയിലേക്ക് മാറ്റിയിരുന്നു രുട്ട്ട്ട്ട്ട്ട്ട്ട തിരുവനന്തപുരത്ത് ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പഭക്തസംഗമം നാളെ വൈകീട്ട് മാതാ അമൃതാനന്ദമയി ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് പുത്ത രിക്കണ്ടം മൈതാനിയിലെ ചടങ്ങിൽ ആധ്യാത്മിക ആചാരന്യമാരും സമു ദായ സംഘടനാ നേതാക്കളും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സംഗമത്തിന് മുന്നോടിയായി നാളെ വൈകീട്ട് രണ്ടുലക്ഷംപേർ പങ്കെടുക്കുന്ന നാമജപയാത്രയും ഉണ്ടാകും ഇന്നലെ നഗരത്തിൽ മഹിളാ വാഹന വിളം ബര ജാഥ സംഘടിപ്പിച്ചിരുന്നു ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ അയ്യപ്പ മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കുളത്തൂർ അദ്വൈതാ ശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അധ്യക്ഷനായിരിക്കും ദർശ്ശേരി പ പുരോഹിതരും കന്യാസ്ത്രീകളും ഉൾപ്പെടുന്ന അച്ചടക്കലംഘനങ്ങളിലും പ്രതിഷേധങ്ങളിലും അവർക്കെതിരെ നട്പടിയെടുക്കണമെന്ന് സിറോ മല ബാർസഭ ബിഷപ്പുമാർക്ക് നിർദ്ദേശം നൽകി അച്ചടക്കലംഘനം വർദ്ധിച്ചുവ രുന്ന സാഹചര്യത്തിലാണ് മലബാർ സിറിയൻ കത്തോലിക് സഭാ സിനഡ് യോഗത്തിൽ ഈ തീരുമാനമുണ്ടായത് കർദ്ദിനാൾ ജോർജ്ജ് ആലഞ്ചേരി എല്ലാ രൂപതകളിലേക്കും ഇതുസംബന്ധിച്ച സർക്കുലർ കൈമാറി രദ്ദേഷ്ടങ സ്വകാര്യ ആശുപത്രികൾ ഗവൺമെന്റ് നിശ്ചയിച്ച വേതനം നഴ്സുമാർക്ക് നൽകാൻ തയ്യാറാകണമെന്ന് ഗവർണർ പി സദാശിവം ആവശ്യപ്പെട്ടു മെച്ച പ്പെട്ട വേതനം ലഭിച്ചില്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കൂടുതൽപേർ കടന്നുവ രില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളജിലെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവെ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ നഴ്സുമാരുടെ ജോലിസാഹചര്യം കൂടുതൽ സുരക്ഷിതമാക്കാനും മെച്ചപ്പെ ടുത്താനും സമയമായെന്നും ഗവർണർ പറഞ്ഞു രദേഷ്ടെടു രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന നൂറ് വിദ്യാർത്ഥികൾക്ക് ഉപഗ്രഹ നിർമ്മാണത്തിൽ പ്രായോഗിക പരിശീലനം നൽകുമെന്ന് ഐ എസ് ആർ

എസ് ആർ ഒയും ഈ സൌകര്യം ഒരു ക്കുന്നത്

രദ്ദേഷ്ടങ ടൂറിസം വകുപ്പിന്റെ വാർഷിക നൃത്തോത്സവം നിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവൽ നാളെ വൈകീട്ട് ഗവർണർ പി സദാശിവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവന പരിഗ ണിച്ച് നിശാഗന്ധി പുരസ്കാരം കലാമണ്ഡലം ക്ഷേമാവതിക്ക് ഗവർണർ സമ്മാനിക്കും

സ്പോൺസർഷിപ്പിലൂടെയാണ് നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത് രദേവ്ട്ട്ട്ട്ട്ട്ട പൊതുതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി യടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത ചൊവ്വാഴ്ച വീഡിയോ കോൺഫറൻസ് നടത്തും സംസ്ഥാന പൊലീസ് മേധാവി ആഭ്യന്തര അഡീഷണൽ ചീഫ്സെക്രട്ടറി ചീഫ് ഇലക്ട റൽ ഓഫീസർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും ക്രമസമാധാനം ഉദ്യോഗസ്ഥ വിന്യാസം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനം തുട ങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും

എസ് നേതാവ് ഭയ്യാജി ജോഷി വിശ്വാസംപ്രകടിപ്പിച്ചു ഉത്തർപ്ര ദേശിലെ പ്രയാഗ്രാജ് കുംഭമേളയിൽ സംസാരിക്കവെയാണ് ഭയ്യാജി ഇക്കാരൃം അറിയിച്ചത്

അപ്പോഴേക്കും രാമ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭയ്യാജി ജോഷി പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട്ട കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയുടെ ജനറൽബോഡി യോഗം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പാപ്പിനശേരി സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

സി നിലവിൽ ചാമ്പ്യന്മാരായ മിനർവ പഞ്ചാബിനെ നരിടും തുടർച്ചയായ നാല് തോൽവിക്ക് ശേഷമാണ് ഗോകുലത്തിന്റെ ഇന്നത്തെ മത്സ രം പത്ത് പോയിന്റോടെ ഒൻപതാം സ്ഥാനത്താണ് ഗോകുലം എഫ്

ഇപ്പോൾ രദേഷ്ടെടു സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ഗ്രൌണ്ടിൽ ഇന്ന് തുടങ്ങും

രുട്ട്ട്ട്ട്ട്ട്ട്ട നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മികച്ച ഗുണനിലവാരത്തോടെ സംസ്ഥാനത്ത് റോഡുകൾ സമയബന്ധിതമായി നിർമ്മിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു പത്തനംതിട്ടയിലെ കലഞ്ഞൂർ പാടം റോഡ് നവീക രണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രദ്ദമ്പ്പെട്ടറ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ പൂർണ്ണമായി ഡിജിറ്റൽവൽക്ക രിക്കുന്നതോടെ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമായി കേരളം മാറുമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു മലപ്പുറത്ത് എ കെ

യു സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

കെ

യു ഏർപ്പെടുത്തിയ പി ആർ നമ്പ്യാർ സ്മാരക പുരസ്കാരം മന്ത്രി രവീന്ദ്രനാഥിന് ബിനോയ് വിശ്വം സമ്മാനിച്ചു മൂന്നുദിവസത്തെ അധ്യാ പക സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് രാവിലെ സി

സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട വിദേശ മലയാളികൾക്ക് നിയമസഹായവും പരിരക്ഷയും ലഭൃമാക്കാൻ പ്രവാസി നിയമസഹായ കേന്ദ്രം ഉടൻ പ്രാവർത്തികമാക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ കോഴിക്കോട്ട് പറഞ്ഞു കേരള പ്രവാസിസംഘം അഞ്ചാം സംസ്ഥാന സമ്മേളനം ടാഗോർഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം എല്ലാരാജൃങ്ങളിലും ഓരോ നിയമോപദേശകരെ നിയ മിക്കാൻ നടപടി തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു

സമസ്ത നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഉറപ്പ് നൽകിയത് ഇതേ ത്തുടർന്ന് ശനിയാഴ്ച നടത്താനിരുന്ന മുതല്ലിമാരുടെ ധർണാ സമരം താൽക്കാലികമായി മാറ്റിവച്ചതായി സമസ്ത നേതാക്കൾ അറിയിച്ചു

ഇതോടെ ആനുകൂല്യ കുടിശിക പൂർണമായി കൊടുത്തു തീർക്കാൻ കഴിയും അഭിട്ട്ടിട്ടുള് വനിതാ കമ്മീഷന് മുന്നിലെത്തുന്ന് വിവാഹമോചന കേസുകളുടെ എണ്ണം അടുത്തകാലത്ത് കുറഞ്ഞുവരികയാണെന്ന് കമ്മീഷനംഗം ഇ എം രാധ കണ്ണൂരിൽ പറഞ്ഞു

മൈലപ്രയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഭൂമി ഒലിച്ചുപോയി വീട് നഷ്ടപ്പെട്ടവർക്ക് പകരം ഭൂമി കണ്ടെത്തി പുനരധിവാസം നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു

നേത്രപരിശോധനാ ക്യാമ്പും സ്മാർട്ട് കെയ്ൻ വിതരണവും ബ്രെയിൽ പ്രദർശനവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്

ടി വാസുദേവൻ നായരാണ് നൽകിയത് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഇടുക്കി ദേവികുളം താലൂക്കിൽ കഴിഞ്ഞ നവംബർ ഒന്നിനാരംഭിച്ച പ്ലാസ്റ്റിക് നിരോധനം കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാൻ സംസ്ഥാന മലി നീകരണ നിയന്ത്രണബോർഡ് തീരുമാനിച്ചു താലൂക്കിലെ എല്ലാ ഗ്രാമപഞ്ചാ യത്തുകളിലും ഇതുസംബന്ധിച്ച യോഗങ്ങൾ വിളിച്ചുകൂട്ടാനും തുടർ നടപ ടികൾ സ്വീകരിക്കാനും ബോർഡ് വിളിച്ച അവലോകന യോഗത്തിൽ തീരു മാനമായി

വരയാടുകളുടെ പ്രജനന കാലം മുൻനിർത്തിയാണ് വിലക്കെന്ന് ചീഫ് വൈൽഡ്ലൈഫ് വാർഡൻ സുരേന്ദ്രകുമാർ അറിയിച്ചു

ഹർത്താൽ ദിവസം നടത്താനിരുന്ന അദാലത്താണ് ഇന്നത്തേക്ക് മാറ്റിയത്